പത്രികാ സമർപ്പണം തുടങ്ങി

തീരുമാനം ഇന്ന റിയാമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല

എസ് എസ് എൽ സി പരീക്ഷ ഇന്ന് സമാപിക്കും

സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് നടുക്കും എട്ടാം തീയ്യതി വരെ പത്രിക പിൻവലിക്കാം ഇടുക്കി ലോക്സഭാ മണ് ഡിലിത്തിൽ എൽ ഡിഎഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് പത്രിക സമർപ്പിച്ചു കക്ഷിരഹിത സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പ്രത്രിക സമർപ്പിച്ചത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർഥിയാകുന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം തുടരുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടെങ്കിലും രാഹുൽ ഇപ്പോഴും മനസ്സ് തുറന്നിട്ടില്ല അതേസമയം രാഹുൽ വയനാട്ടിൽ സ്ഥാനാർഥിയാകുന്നതിനെ യുപിഎയിലെ ഘടക കക്ഷികളായ എൻസിപിയും ലോക് താന്ത്രിക് ജനതാദളും എതിർത്തതായും റിപ്പോർട്ടുകളുണ്ട്

അതിൽ വയനാട് വടകര സീറ്റുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന സൂചന താൻ നൽകിയിട്ടില്ലെന്ന് മുൻമുഖൃമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു

മത്സരിക്കുമെന്ന സൂചന നൽകാൻ രാഹുലിന് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമില്ലെന്നും സ്ഥാനാർഥിയുടെ കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകുമെന്നും ഉമ്മൻ ചാണ്ടി വൃക്തമാക്കി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യം ഇന്നറി യാമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു മത്സ രിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഉറപ്പുണ്ടെങ്കിൽ നേരത്തെ പറയുമായിരുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു

രാഹുൽ ഗാന്ധി മത്സ രിക്കാതിരിക്കാൻ ഇടതുപക്ഷം ഇടപെട്ടുവെന്നത് ശരിയല്ലെന്നും ഇത് ബി ജെ പിയുടെ വ്യാജപ്രചരണമാണെന്നും ചെന്നിത്തല പറഞ്ഞു ൃ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന തുഷാർ വെള്ളാ പ്പള്ളി എസ്എൻഡിപി യോഗം വൈസ് പ്രസിഡണ്ട് സ്ഥാനം രാജി വെക്കു ന്ന താണ് നല്ല തെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു

നേരത്തെ ഭാരവാഹികൾ മത്സരിച്ചപ്പോൾ ദയനീയ മായി പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം കൊല്ലത്ത് വൃക്തമാക്കി പരാജയം സമുദായത്തിന്റെ മോശം പ്രതിച്ഛായക്ക് കാരണമായെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ന എന്നും കോൺഗ്രസ് പ്രവർത്തകനായി തുടരുമെന്ന് പ്രൊഫ

തനിക്ക് സ്ഥാനമാനങ്ങൾ നൽകി യത് പാർട്ടിയാണെന്ന് അദ്ദേഹം വൃക്തമാക്കി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വീകരണ ത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ വി തോമസ് എല്ലാ മണ്ഡലങ്ങളിലും യുഡിഫിനു വേണ്ടി പ്രചാ രണത്തിനിറങ്ങും മത്സരരംഗത്തു നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു വെന്നും ചർച്ച ചെയ്യാതെ സീറ്റ് നിഷേധിച്ചപ്പോഴാണ് വിഷമമു ണ്ടായതെന്നും കെ വി തോമസ് പറഞ്ഞു

എന്നാൽ ഏതെങ്കിലും പാർട്ടിക്ക് ്വേണ്ടി പ്രചാരണം നടത്തില്ല ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ടിരുന്നുവെങ്കിൽ എൻ ഡി എയ്ക്ക് പരസ്യപിന്തുണ നൽകുമായിരുന്നുവെന്നും അദ്ദേഹം സ്വകാര്യ ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കി ആർക്കെങ്കിലും വോട്ട് ചെയ്യണമെന്ന് പന്തളം കൊട്ടാരം ആഹ്വാനം ചെയ്യില്ലെന്നും ശശികുമാരുവർമ പറഞ്ഞു

അയോധ്യ പ്രശ്ന പരിഹാരത്തിന് തുടരുന്ന മധ്യസ്ഥ ചർച്ചകളെ ചിത്രം പ്രതികൂല മായി ബാധിക്കുമെന്നാരോപിച്ച് നൽകിയ ഹർജി ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് നിരസിച്ചത് ചിത്രത്തിന്റെ റിലീസിങ്ങും മധ്യസ്ഥ ചർച്ചയും തമ്മിൽ ബന്ധ മൊന്നുമില്ലെന്ന് ബെഞ്ച് വിലയിരുത്തുകയായിരുന്നു രണ്ടാഴ്ചക്കു ശേഷം ഹർജി വീണ്ടും പരിഗണിക്കും മുന്നോക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ഗവൺമെന്റ് ജോലികളിൽ പത്ത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ ഭർണഘടനാ ഭേദഗതിക്കെതിരായി നൽകിയ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി അടുത്ത മാസം എട്ടിലേക്ക് മാറ്റി

സെറ്റ്ടോപ്പ് ബോക്സ് മാറ്റാതെ ഡി ടി എച്ച് ഓപ്പറേറ്ററെയോ കേബിൾ സേവന ദാതാവിനെയോ മാറ്റാൻ കഴിയുന്ന സംവിധാനം നിലവിൽ വരുമെന്ന് ട്രായ് ചെയർമാൻ ആർ എസ് ശർമ അറിയി ച്ചു ഈ വർഷം അവസാനത്തോടെ ഈ സൌകര്യം പ്രാബല്യ ത്തിൽ വരുമെന്ന് അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു ഫോൺ നമ്പർമാറാതെ സേവനദാതാവിനെ മാറ്റാൻ കഴിയുന്ന പോർട്ടബി ലിറ്റി സൌകര്യം പോലെ തന്നെയാണിതെന്ന് ട്രായ് ചെയർമാൻ അറിയിച്ചു ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിനുള്ള പ്രമേയം വീണ്ടും യു എൻ രക്ഷാസമിതിയുടെ പരിഗണനയ്ക്കെ ത്തി അമേരിക്കയാണ് പ്രമേയം കൊണ്ടു വന്നത്

പ്രമേയത്തെ ചൈന ഇത്ത വണയും വീറ്റോ ചെയ്യുമോ എന്നാണ് ലോകം ഉറ്റു നോക്കുന്ന ത് ഇതിനുമുമ്പ് മസൂദ് അസ്ഹറിനെതിരായ പ്രമേയം രക്ഷാസമി തിയിൽ വന്നപ്പോഴെല്ലാം ചൈന വീറ്റോ ചെയ്തിരുന്നു സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസമായ ഞായ റാഴ്ച ബാങ്കുകൾ തുറന്ന് പ്രവർത്തിക്കണമെന്ന് റിസർവ് ബാങ്ക് നിർദേശിച്ചു ഗവൺമെന്റ് ഇടപാടുകൾ നടത്തുന്ന ബാങ്കുകളുടെ എല്ലാ ശാഖകളും ഞായറാഴ്ച രാവിലെ എട്ടു മുതൽ വൈകീട്ട് ആറുവരെ പ്രവർത്തിക്കണമെന്നാണ് നിർദേശം വർഷാന്ത്യ ക്ലോസിംഗിന്റെ ഭാഗമായി ഗവൺമെന്റിന്റെ രസീത് പെയ്മെന്റ് ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയാണിത്

അധികാരത്തിലേറിയ ശേഷമാണ് ഇവ പരീക്ഷിക്കാൻ തീരുമാ നിച്ചതെന്ന് അവർ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഒരു രാജ്യത്തിനും ഈ സാങ്കേതിക വിദ്യ വിൽക്കാനോ കൈമാറാനോ കഴിയില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി വൃക്തമാക്കി വലതും ചെറുതുമായ ഒട്ടേറെ ഉപ ഗ്രഹങ്ങൾ ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്

ഇതൊന്നും ആരും നിഷേ ധിക്കുന്നില്ലെന്നും നിർമലാ സീതാരാമൻ പറഞ്ഞു

ഭീകരർ തമ്പടിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന പ്രദേശം വളയുകയായിരുന്നു സി ആർ പി എഫും ആർമിയും പൊലീസും സംയുക്തമായാണ് ഓപ്പറേ ഷൻ നടത്തിയത്

എസ്എസ്എൽസി പരീക്ഷ ഇന്ന് അവസാനിക്കും നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കുട്ടികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്

പരീക്ഷാഫലം മെയ് ആദ്യവാരം പ്രസിദ്ധീകരിക്കും ഹയർസെക്കണ്ടറി പരീക്ഷ ഇന്നലെ പൂർത്തിയായിരുന്നു ഐ പി എൽ ക്രിക്കറ്റിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും

മിഠായിത്തെരുവിനെ വ്യാപാർ തെരുവായി നിലനിർത്തുക നിലവിലെ പാർക്കിംഗ് സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് സമരം വാഹനനിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മിഠായിത്തെരുവിൽ ഉപഭോക്താക്കളുടെ എണ്ണം കുറഞ്ഞെന്ന് വ്യാപാരികൾ പറയുന്നു കൊല്ലം ഓച്ചിറയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയ നാടോടി പെൺകുട്ടിയെയും മുഖ്യപ്രതി റോഷനെയും ഉച്ച കഴിഞ്ഞ് ഓച്ചി റയിൽ എത്തിക്കും ചൊവ്വാഴ്ച രാവിലെ മുംബൈയിൽ പനവേ ലിയിൽ നിന്നാണ് അന്വേഷണസംഘം ഇവരെ കസ്റ്റഡിയിലെടു ത്തത്

കർണാടക ചെറുകിട ജലസേചന മന്ത്രി സി എസ് പുട്ടരാജു വിന്റെയും ബന്ധുവിന്റെയും വസതികളിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി സി ആർ പി എഫ് ഉദ്യോ ഗസ്ഥരും റെയ്ഡിൽ പങ്കെടുത്തു സംസ്ഥാനത്ത് കനത്ത ചൂട് ഒരാഴ്ച കൂടി തുടരുമെന്ന് മുന്നറിയിപ്പ്

വയനാട് ഇടുക്കി ഒഴികെ ജില്ലകളിൽ താപനില മൂന്ന് ഡിഗ്രി കൂടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

സമാപന സമ്മേളനം ഇന്ന് വൈകീട്ട് ഏഴിന് ദർബാർ ഹാൾ മൈതാനത്ത് നടക്കും

ബി ഐ

മതപണ്ഡിതനും കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റുമായ ടി കെ മുഹ്യുദ്ദീൻ ഉമരി തിരൂരങ്ങാടിയിൽ നിര്യാതനായി

തിരൂരങ്ങാടി മുസ്തിം ഓർഫനേജ് കമ്മിറ്റി പ്രസിഡന്റ് കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സ്ഥാപകാംഗം ഐ എസ് എം സംസ്ഥാന പ്രസിഡന്റ് കെ എൻ എം സംസ്ഥാന കമ്മിറ്റിയംഗം തിരൂരങ്ങാടി ലൈബ്രറി പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്